എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനും റോയൽ ചലഞ്ചേഴ്സിനും വിജയം ത സിവിൽ സർവ്വീസ് പ്രാഥമിക പരീക്ഷ ഇന്ന്

സ്കൂളുകൾ തുറക്കാവുന്ന സമയമെത്തിയാൽ അവയുടെ പ്രവർത്തനം തുടങ്ങാമെന്നാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു വരും തലമുറയ്ക്കായി പൊതു വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ നടപടി എടുത്തുവരികയാണ്

മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു

തീര മേഖലയിൽ ഗൃഹ നിരീക്ഷണ സൌകര്യമില്ലാത്തവർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തണെന്ന് മന്ത്രി നിർദ്ദേശം നൽകി പഞ്ചായത്ത് തലത്തിൽ രോഗനിയന്ത്രണ നടപടികൾക്ക് രാഷ്ട്രീയ കക്ഷികളുടെ യോഗം ഉടൻ സംഘടിപ്പിക്കുമെന്നും മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു

ക്വാറന്റൈൻ ലംഘനത്തിന് മൂന്ന് കേസുകളും എടുത്തിട്ടുണ്ട് ദേദ കൊല്ലം ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ ജില്ലാ കലക്ടർ അപ്രതീക്ഷിത പരിശോധന നടത്തി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതിരുന്ന സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും കർശന താക്കീത് നൽകി

രുദ കോവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് കൊല്ലത്തെ തങ്കശ്ശേരി മൂതാകര വാടി പോർട്ട് കൊല്ലം ജോനകപ്പുറം ഹാർബറുകളിൽ നിന്ന് മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോകുന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ജില്ലാ കലക്ടർ നിരോധിച്ചു കോഴിക്കോട് വടകരയിലെ ചോമ്പാല ഹാർബറും അടച്ചിടാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ അതിനനുസരിച്ച് സൌകര്യങ്ങൾ ഏർപ്പെടുത്താനാകുമെന്നും കലക്ടർ പറഞ്ഞു

സ്വകാര്യ ആശുപത്രികളിലെത്തുന്ന കോവിഡ് രോഗികൾക്ക് അവിടെത്തന്നെ ചികിത്സ നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ദേദ കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പൊതു ഗതാഗതം തടസ്സപ്പെടുത്തരുതെന്ന വ്യവസ്ഥ ഉണ്ടെങ്കിലും ജല ഗതാഗത വകുപ്പ് കൊച്ചിയിൽ ഏതാനും ബോട്ട് സർവ്വീസുകൾ നിർത്തി വെച്ചിരിക്കുകയാണെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി എറണാകുളം മട്ടാഞ്ചേരി സർവ്വീസും കമാലക്കടവ് സർവ്വീസും പുനഃരാരംഭിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം അസോസിയേഷൻ ഉപയോഗിക്കണമെന്ന് കലക്ടറോട് ആവശ്യപ്പെട്ടു

മരണസംഖ്യ ഇന്നലെ ഒരു ലക്ഷം കവിഞ്ഞിരുന്നു

കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പൊലീസ് സൂപ്രണ്ട് അടക്കം അഞ്ച് പേരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിനിടെ രാഹുൽ ഗാന്ധി എം

രുമ എഞ്ചിനീയറിംഗ് വിസ്മയമായ അടൽ ഹൈവേ തുരങ്കപാത ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ നന്ദി അറിയിച്ചു അടൽ ബിഹാരി വാജ്പേയിയുടെ സ്വപ്നം ഇതോടെ പൂവണിഞ്ഞതായും അമിത് ഷാ ട്വിറ്ററിൽ കുറിച്ചു രുമ പുതിയ കാർഷിക തൊഴിൽ നിയമങ്ങൾ കർഷകർക്കും തൊഴിലാളികൾക്കും വളരെയേറെ ഗുണം ചെയ്യെന്ന് കേന്ദ്രമന്ത്രി സന്തോഷ് ഗാങ് വാർ ന്യൂഡൽഹിയിൽ വീഡിയോ കോൺഫറൻസിംഗിൽ പറഞ്ഞു കർഷകർക്ക് രാജ്യത്ത് എവിടെയും ഉല്പന്നങ്ങൾ വിറ്റഴിക്കാനും ഇതര സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെട്ട വിലയ്ക്ക് ഉല്പന്നങ്ങൽ എത്തിച്ച് നൽകാനും നിയമം സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ദരദ കുവൈറ്റ് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദിനോട് ആദര സൂചകമായി രാജ്യത്ത് ഇന്ന് ഒരു ദിവസത്തെ ദുഃഖാചരണം നടത്തും

കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അമീറിന്റെ അന്ത്യം

അബുദാബിയിൽ മറ്റൊരു മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ഷാർജയിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസസ് ഹൈദരബാദിനെയും ഏഴരയ്ക്ക് ദുബൈയിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെയും നേരിടും

കോവിഡ് പശ്ചാത്തലത്തിൽ പരീക്ഷാ നടത്തിപ്പിന് വിശദമായ മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചു കോവിഡ് പോസിറ്റീവായവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല വിദ്യാർത്ഥികൾക്കും പരീക്ഷ നടത്തിപ്പ് ജീവനക്കാർക്കും അഡ്മിറ്റ് കാർഡും തിരിച്ചറിയൽ കാർഡും ഉപയോഗിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് തടസ്സമില്ലാതെ യാത്ര ചെയ്യാം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് എത്തുന്നവർക്കും ഇത്തരത്തിൽ യാത്ര അനുവദിച്ചിട്ടുണ്ട് രുമ ചുരത്തിന് ബദലായി നിർമ്മിക്കുന്ന വയനാട് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രൊജക്ട് ലോഞ്ചിംഗ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നടത്തും

ആനക്കാംപൊയിലിന് സമീപം മറിപ്പുഴയിലെ സ്വർഗ്ഗംകുന്നിൽ നിന്ന് ആരംഭിച്ച് വയനാട്ടിലെ മേപ്പാടിയ്ക്ക് സമീപം എത്തുന്ന തുരങ്കപാത പരിസ്ഥിതിക്കോ ജൈവസമ്പത്തിനോ ദോഷകരമല്ലാത്ത രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്

സപ്പൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളും നവീകരിക്കാൻ നടപടി എടുത്തുവരികയാണെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ നവീകരിച്ച അഞ്ച് സപ്ലൈകോ വിൽപ്പന ശാലകൾ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

നടപടി പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ കോവിഡ് ഡ്യൂട്ടി ഒഴികെ അത്യാഹിത വിഭാഗങ്ങളിലടക്കം ജോലിക്ക് ഹാജരാവില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു വിട്ട് നിൽക്കൽ പ്രതിഷേധം മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ഡോക്ടർ അറിയിച്ചിട്ടുണ്ട് രുമ കലാഭവൻ മണിയുടെ സഹോദരൻ ആർ

വി രാമകൃഷ്ണനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അമിതമായി ഉറക്ക ഗുളിക കഴിച്ച നിലയിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു ഓൺലൈൻ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സംഗീത നാടക അക്കാദമി അവസരം നൽകിയില്ലെന്നാരോപിച്ച് രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അക്കാദമിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു

സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി രുദ എറണാകുളം ജില്ലയിലെ ചെല്ലാനത്ത് എട്ട് കോടി രൂപ ചെലവിൽ ജിയോ ട്യൂബുകൾ ഉപയോഗിച്ച് കടൽ ഭിത്തി നിർമ്മിക്കും കടലാക്രമണത്തിൽ നിന്ന് തീരങ്ങളെ സംരക്ഷിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം രുദ ഇടുക്കി മുരിക്കാശ്ശേരി പടമുഖത്ത് രണ്ട് കിലോ കഞ്ചാവുമായി ഒരാളെ പിടികൂടി പത്തനാപുരം സ്വദേശി വിബിൻ വിജയ് ആണ് എക്സൈസ് പിടിയിലായത്